ജനമുന്നേറ്റം ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളും സന്നദ്ധ സംഘടനകളും ഇതിനായി ഒന്നിക്കണമെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി

ബാധിക്കുമെന്നും ശക്തമായ നടപടി വേണമെന്നും യു

പുറപ്പെട്ടു

റൺസ് വിജയലക്ഷ്യം ബെയർ സ്റ്റോവിന് സെഞ്ചറി ഷമിക്ക് അഞ്ച് വിക്കറ്റ്

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത

ഗവൺമെന്റ് രൂപംകൊടുത്ത ജലശക്തി മന്ത്രാലയത്തിന്റെ പ്രാധാനൃം ഈ സാഹചര്യത്തിൽ വളരെ വലുതാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി

പുസ്തകം നൽകുന്ന നല്ല അനുഭവങ്ങളെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി പൂക്കൾക്കുപകരം പുസ്തകം സമ്മാനിക്കുന്ന ശീലത്തിലേക്ക് മാറണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തി

മോദി പാർലമെന്റിൽ പ്വർധിച്ച സ്ത്രീ പങ്കാളിത്തത്തെ പ്രശംസിച്ചു ജനാധിപത്യം നമ്മുടെ ജീപ്തശൈലിയും പാരമ്പരൃവുമാണെന്ന് പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി അടിയന്തരാവസ്ഥയിലൂടെ രാജ്യത്തെ ജനങ്ങളെയും സ്വാതന്ത്രൃ്ത്തെയും തടവിലാക്കിയതും പരാമർശിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒരു രാജൃത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ട് സാധാരണക്കാരുമായി സംവദിക്കുന്ന റേഡിയോ പരിപാടി ലോകത്ത് ആദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു പൂനെയിൽ ആനന്ദ്നഗർ നിവാസികളോടൊപ്പം മൻ കി ബാത് പരിപാടി കേട്ടതിനുശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം

ഇടനാഴി ഉടൻ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിച്ചാണ് ഇന്ത്യ പാകിസ്ഥാനു മുന്നിൽ പുതിയ തീയതി നിർദ്ദേശിച്ചതെന്ന് വിദേശകാരൃ മന്ത്രാലയം അറിയിച്ചു കർത്താർപ്പൂർ ഇടനാഴി സംബന്ധിച്ച് പാകിസ്ഥാൻ നിയോഗിച്ച കമ്മിറ്റിയിൽ ഖാലിസ്ഥാൻ വിഘടനവാദി ഉൾപ്പെട്ടതിൽ ഇന്ത്യ നേരത്തെ ആശങ്ക അറിയിച്ചിരുന്നു കൂടാതെ പദ്ധതി സംബന്ധിച്ച വൃവസ്ഥകളിൽ കൂടുതൽ വൃക്തത വരുത്താനും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു

കഴിഞ്ഞ നവംബറിലാണ് സിക്ക് ഗുരു ്യൂരു്നാനാകിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ ദർബാർ സാഹിബ്ട് കുരുദ്ധാര സ്ഥിതി ചെയ്യുന്ന കർതാർപൂറിലേക്ക് ഇന്ത്യാക്കാർക്ക് പ്രവേശിക്കാൻ പാക്കിസ്ഥാൻ അനുമതി നൽകിയത്

എൻ

അബുദാബിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര കാലാവസ്ഥാ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സെപ്തംബറിൽ ന്യൂയോർക്കിൽ നടക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടിക്ക് മുന്നോടിയായാണ് രണ്ടു ദിവസത്തെ അബുദാബി ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്

കേന്ദ്ര സംസ്ഥാന സായുധ സേനയുടെ സ്റ്റ്പ്പന് തീർത്ഥാടകരുടെ വാഹനം കടന്നുപോകുന്ന ഇടങ്ങളിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്

ദക്ഷിണ ഉത്തര കൊറിയകൾക്കിടയിലുള്ള സൈനികമുക്ത മേഖലയിൽ വച്ചാണ് കൂടിക്കാഴ്ച നടന്നത് ആദൃമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരകൊറിയയിൽ എത്തുന്നത്

കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പഠനമനുസരിച്ചാണ് ഈ വിവരങ്ങളെന്നും അദ്ദേഹം പറയുന്നു

കത്വ ജില്ലയിലെ ഹിരാനഗറിൽ സ്റ്റ്ഘടിപ്പിച്ച ചടങ്ങിലാണ് അർഹരായ ഗുണഭോക്താക്കൾക്ക് പ്രശ്സിറ്റ് ടോപ്പ് ബോക്സുകൾ നൽകിയത്

അതിർത്തിയിലെ താമസക്കിർക്ക് സെറ്റ് ടോപ് ബോക്സുകൾ വഴി ആധികാരികമായ വിവര്ങ്ങൾ ലഭിക്കുമെന്നും ശ്രീ

ശബരിമല പ്രശ്നം അയോധ്യ ഭൂമിതർക്കം റഫാൽ കേസിലെ പുനഃപരിശോധനാ ഹർജികൾ എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന കേസുകൾ കോടതിയുടെ പരിഗണനയിൽ വരും

ഇത്തരം പണമിടപാടുകൾക്ക് ചാർജ്ജുകൾ ഈടാക്കില്ലെന്ന റിസർവ്വ് ബാങ്കിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഇത്

പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കിടെയാണ് ആക്രമണം ഉണ്ടായത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ലക്ഷ്ട്ടമിട്ടാണ് താലിബാൻ ആക്രമണം നടത്തിയതെന്ന് ഔദ്യോഗികവൃത്തങ്ങൾ അറിയിച്ചു

ഓപ്പണർ കെ

രാഹുലിനെയാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത്

ഈ ലോകകപ്പിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ നേട്ടമാണിത്